ആഗോള വളർച്ചാ പുനരുജ്ജീവനത്തിന്റെ എഞ്ചിനായി ഇന്ത്യയെ മാറ്റുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

നിക്ഷേപകർക്ക് വിശ്വാസ്യതയോടുകൂടിയ വരുമാനം സ്ഥായിയായ സ്ഥിരത ഹരിത സമീപനത്തിലൂടെ വളർച്ച എന്നിവ വേണമെങ്കിൽ ഇന്ത്യയാണ് അതിനുപറ്റിയ സ്ഥലമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കാർഷിക മേഖലയിൽ ഈയിടെ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഇന്ത്യയിലെ കർഷകരുമായി പങ്കാളികളാകാൻ പുതിയ സാധ്യതകൾ തുറന്നു തന്നിട്ടുണ്ട്

സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തി കോവിഡിനെതിരെ ഇന്ത്യ പോരാട്ടം നടത്തിയതായി പ്രധാനമന്ത്രി അറിയിച്ചു ദേദ സംസ്ഥാനത്ത് ചികിത്സയിലിരിക്കുന്ന കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞുവരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഓരോ ദിവസത്തെയും കണക്ക് തൊട്ട് മുൻ ആഴ്ചയിലെ അതാത് കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നു മുതൽ പത്തുശതമാനം വരെ കുറവ് കാണുന്നുണ്ടെന്നും ഇത്തരം പ്രവണത ഇത്രയധികം ദിവസങ്ങളിൽ തുടർച്ചയായി കാണിക്കുന്നത് ആദ്യമായാണെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

കോവിഡ്മുക്തി നേടിയവർക്കായി എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്

ദ്ദേ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി

സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിനായി ഇന്ന് ഹാജരാകാൻ അദ്ദേഹത്തോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നു

ദേദ കൊറോണ മഹാമാരിയെ തുരത്താൻ നാം അതീവ ജാഗ്രത പാലിക്കണമെന്ന് നടൻ മാമുക്കോയ പറഞ്ഞു

തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ജനറൽ സർജറി ഓർത്തോപീഡിക്സ് ന്യൂറോളജി വിഭാഗങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ടെലിമെഡിസിൻ സൌകര്യം ലഭ്യമാവുക ദേദ കെഫോണും ഇ മൊബിലിറ്റിയും ഗവൺമെന്റിന്റെ അഭിമാന പദ്ധതികളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം സുപ്രധാന പദ്ധതികളെ എങ്ങനെയൊക്കെ തുരങ്കം വെക്കാമെന്നാണ് ഒരു കൂട്ടർ ആലോചിക്കുന്നതെന്നും കെ ഫോൺ പദ്ധതി അടക്കം അട്ടിമറിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി

ദ്ദേ കേരളത്തിന്റെ വികസനത്തിന് ജനങ്ങൾ ഒപ്പമുണ്ടാകുമെന്നതിന്റെ തെളിവാണ് മലപ്പുറം ജില്ലയിലെ ദേശീയപാത വികസനമെന്ന് സ്പീക്കർ പി

ദേദ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ തുടങ്ങി രണ്ടുദിവസം പിന്നിട്ടിട്ടും അടുത്ത പ്രസിഡന്റ് ആരായിരിക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്

ദേദ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്ക് പൊതു വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഭക്ഷ്യകിറ്റുകളുടെ വിതരണം തുടങ്ങി

കിറ്റുകളുടെ വിതരണോദ്ഘാടനം മന്ത്രി സി രവീന്ദ്രനാഥ് വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു

എൽ ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യൻമാരായ മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ പ്രവേശിച്ചു

ഇന്ന് അബുദാബിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ വൈകീട്ട് ഏഴരയ്ക്ക് നടക്കുന്ന എലിമിനേറ്ററിൽ വിജയിക്കുന്ന ടീമുമായി ഞായറാഴ്ച രണ്ടാം ക്വാളിഫയറിൽ ഡൽഹി മത്സരിക്കും ഇതിൽ ജയിച്ചാൽ ഡൽഹിക്ക് ഫൈനലിൽ മുംബൈയോട് ഏറ്റുമുട്ടാം ദേദ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കല്ലുവാതുക്കൽ പഞ്ചായത്ത് ഹൈസ്കൂൾ കോമ്പൌണ്ടിൽ ആരംഭിച്ച സംസ്ഥാനത്തെ ആദ്യ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ത്രി ഇ

ദേശീയ തലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ നിർമിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ജില്ലയുടെ കായിക ഭൂപടത്തിലെ ശ്രദ്ധേയ നേട്ടമാണെന്ന് മന്ത്രി പറഞ്ഞു

ഇടുക്കിയിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി തീരദേശ ആദിവാസി മേഖലയിലെ കുട്ടികൾക്കായി പഠനപരിപാടി നാട്ടരങ്ങിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദേദ തിരുവനന്തപുരം ജില്ലയിലെ ടൂറിസം മേഖലയിൽ അഞ്ഞൂറ് കോടി രൂപയുടെ വികസനപ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ടൂറിസം കേന്ദ്രങ്ങളിൽ മിയാവാക്കി മാതൃകയിൽ വനവൽക്കരണം നടത്തുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മിയാവാക്കി കാടുകൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ വിനോദ സഞ്ചാര മേഖലകൾ കൂടുതൽ ആകർഷകമാകുമെന്നും പ്രകൃതി സംരക്ഷണത്തിന് ഇവ ഏറെ പ്രയോജനം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ദേദ ഇടുക്കി ജില്ല സംസ്കാരങ്ങളുടെ സംഗമ സ്ഥാനമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു വൈവിധ്യമാർന്ന സംസ്കാരവുമായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ജീവിച്ചതിന് തെളിവ് ഇടുക്കിയിലുണ്ടെന്നും മറയൂരിലും കാന്തല്ലൂരിലുമായി പതിനഞ്ചോളം ഗുഹകൾ സംസ്ഥാന പുരാവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി ജില്ലാ പൈതൃക മ്യൂസിയം പുരാവസ്തു വകുപ്പിന് കൈമാറുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ദേദ സാമാന്യം നല്ല മഴ ലഭിക്കുന്ന പ്രദേശമായ കാസർകോട് ജില്ലയിൽ ഏറ്റവും രൂക്ഷമായ ജലക്ഷാമം നേരിടേണ്ടി വരുന്നത് ഗൌരവത്തിലെടുക്കേണ്ട വിഷയമാണെന്നും ഇത് പ്രതിരോധിക്കാൻ മഴവെള്ളം പരമാവധി ഭൂമിയിലേക്ക് ഇറക്കി വിടുന്ന പദ്ധതികൾ പ്രധാന അജണ്ടയായി മാറണമെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു കാസർകോട് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ദേദ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും അർഹതപ്പെട്ട അളവിൽ ധാന്യം കൃത്യമായി വാങ്ങാൻ കഴിയുന്ന മാറ്റം നടപ്പിലാക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞതായി മന്ത്രി പി

തൃശൂർ ജില്ലയിലെ വാണിയമ്പാറയിൽ സപ്പ്പൈകൊ സൂപ്പർ സ്റ്റോറിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദ്ദേ നാലര വർഷം കൊണ്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികൾ മത്സ്യബന്ധന മേഖലയിൽ കാതലായ മാറ്റം ഉണ്ടാക്കിയതായി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു ശക്തികുളങ്ങര നീണ്ടകര ഹാർബറുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി നബാർഡ് വഴി നടപ്പാക്കുന്ന പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനം ശക്തികുളങ്ങര ഹാർബറിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ദ്ദേ വീടുകളിൽ പഠന സാഹചര്യം ഇല്ലാത്ത പട്ടികവർഗ്ഗ വിഭാഗം വിദ്യാർത്ഥികളെ ഹോസ്റ്റലിലേക്ക് മടക്കി കൊണ്ടുവരുമെന്ന് മന്ത്രി എ